ശക്തിയും സാസ്കാരിക വൈവിധ്യവും വിളിച്ചോതി ന്യൂഡൽഹി രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു

രാഷ്ട്രപതിയും ഉപ്പരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖ്ർ സംസ്ഥാനങ്ങളിലും വിപുലമായ റിപ്പബ്ലിക് ദിന പരിപാടികൾ

കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് കേന്ദ്രസർക്കാർ ന് നിലകൊള്ളുന്നതെന്ന് റിപ്പബ്ലിക് ദിനസന്ദേശത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

എസ്

കെ മോഹൻ ബഗാൻ പോരാട്ടം

വിശദാംശങ്ങളുമായി അഞ്ജന

രാജ്യത്തിനായി വീരമൃത്യുവരിച്ച ധീരജവാൻമാർക്ക് അദ്ദേഹം ആദരമർപ്പിച്ച് പുഷ്പ ചക്രം

കോവിഡ് പശ്ചാത്തലത്തിൽ റിപ്പബ്ലിക് ദിന റാലിയുടെ ദൈർഘ്യം കുറച്ചിട്ടുണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എല്ലാവർക്കും റിപ്പബ്ലിക്ക് ദിനാശംസകൾ നേർന്നു ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ആശംസകൾ അറിയിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു സ്ഥാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് നമ്മുടേതെന്നും ഭരണഘടനാമൂല്യങ്ങൾ സംരക്ഷിച്ച് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണെമന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ ്അറിയിച്ചു രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെയും പാരമ്പര്യത്തിന്റേയും ് പ്രതീകമാണ് റിപ്പബ്ധിക് ദിനമെന്നും ശ്രീ അമിത ഷാ പറഞ്ഞും രാജ്യത്തിന്റെ സൈനിക ശക്തി തെളിയിക്കുന്നതായിരുന്നു സൈനിക് പ്രേഡ്

രാജ്യത്തിന്റെ ്സാംസ്കാരിക പൈതൃകവും വൈവിധ്യവും പ്രദർശിപ്പിക്കുന്നതായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചലദൃശ്യപ്രദർശനം കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ലഡാക്ക് ആദ്യമായി നടത്തിയ നിശ്ചലദൃശ്യത്തോടെയാണ് സാംസ്കാരിക നിശ്ചലദൃശ്യ പ്രദർശനം ആരംഭിച്ചത്

വടക്കൻ മലബാറിന്റെ തനത് കലാരൂപമായ തെയ്യമുൾപ്പെടുന്ന ദൃശ്യങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിലുൾപ്പെട്ടത്

രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിദേശരാജ്യങ്ങളിൽ നിന്നും ആശംസാ പ്രവാഹമാണ്

യിൽ വൈറസ് പ്രഭാവം രൂക്ഷമായതിനെ തുടർന്ന് ഇത്തവണ വിശിഷ്ടാതിഥിയായി ഇന്ത്യയിൽ എത്താൻ കഴിഞ്ഞില്ല വരും മാസങ്ങളിൽ ഇന്ത്യാ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചുണ്ട്

സർക്കാർ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതിൽ സംശയമില്ലിന്ന് അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്നല്ലൂ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പൂർണ്കോവിഡ് സാഹചര്യത്തിലും ഭക്ഷ്യവസ്തുക്കൾ പാൽ ഉത്പൂന്ന്ങൾ എന്നിവയിൽ സ്വയം പര്യാപ്തത നേടാൻ കർഷകരുടെ പ്രവർത്തന്ങൾ മൂലം സാധ്യമായി രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സ്സൈനികരേയും രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തു

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിവാദ്യം സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന പരേഡുകളിൽ വിവിധ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങ്

ഗായകൻ എസ്

ബാലസുബ്രഹ്മണ്യത്തിനു മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു കേരളത്തിൽ നിന്ന് ഗായിക കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷണും കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അത്ലറ്റിക് കോച്ച് ഒ

നമ്പ്യാർ തോൽപ്പാവക്കൂത്ത് കലാകാരൻ കെ

രാമചന്ദ്ര പുലവർ സാഹിത്യകാരൻ ബാലൻ പുതേരി ഡോ ധനഞ്ജയ് ദിവാകർ സദ്ദേവ് എന്നിവരാണ് പത്മശ്രീ പുരസ്ക്കാരത്തിന് അർഹരായത്

മുൻ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും പത്മഭൂഷ്ട്രൺ നൽകും

ഇന്ത്യ ഫിൻലന്റ് വിയറ്റ്നാം ഖത്തർ എന്നീ രാജൃങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് നീക്കിയത് ഇതു സംബന്ധിച്ച ഉത്തരവിൽ റഷ്യൻ ഭരണകൂടം ഒപ്പു വച്ചതായി റഷ്യൻ സ്ഥാനപതി കാര്യാലയം ട്വീറ്റ് ചെയ്തു

ഒഡിഷ തീരത്തെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് പ്രതിരോധ വികസന സ്ഥാപനമായ ഡി ആർ ഡി

കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലിന്റെ എല്ലാ ദൌതൃവും ലക്ഷ്യം കണ്ടു

ഡി ഒ യിലെയും ബെല്ലിലെയും ശാസ്ത്രജ്ഞരെയും വ്യോമസേനയിൽ നിന്നുള്ള സംഘത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നീീഥ് സിങ് അഭിനന്ദിച്ചു

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ